ആവശ്യമായ മഴക്കാല മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

നാവിക സേന കമാന്റർമാരുടെ യോഗത്തെ രാജ്നാഥ് സിംഗ് അഭിസംബോധ്ന ചെയ്തു

അന്വേഷിക്കാൻ സിബിഐ ക്ക് സുപ്രീം കോടതി നിർദേശം

ബൌബക്കർ കേത്ത രാജിവെച്ചു

ഡെങ്കി ചിക്കൻഗുനിയ മലേറിയ പോലുള്ള രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത് പ്രധാനമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു

കോവിഡിനെ തുടർന്ന് വിദേശത്ത് കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെയെത്തിക്കാൻ നാവിസേന നടത്തിയ സമുദ്രസേതു ദൌതൃത്തെ ശ്രീ രാജ്നാഥ് അഭിനന്ദിച്ചു

രാവിലെ സേനാഭവനിലെത്തിയ ശ്രീ രാജ്നാഥ് സിംഗിനെ നാവികസേനാ മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന് സ്വീകരിച്ചു

വ്യാപനംമൂലം നാവികസേനയുടെ ആധുനികവൽക്കരണം ലഡാക്കിലെ സ്ഥിതി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാവിന്യാസം തുടങ്ങിയ കാര്യങ്ങളാണ് യോഗം ചർച്ച ചെയ്യുന്നത്

ദേശീയ അന്താരാഷ്ട്ര തലങ്ങളിലെ സംഭവവികാസങ്ങൾ നിരീക്ഷിച്ച് തദ്ദേശീയ വിപണിയ്ക്ക് വെല്ലുവിളികൾ ഉണ്ടാകാത്ത വിധത്തിൽ ഇടപാടുകൾ സാധ്യമാക്കുന്നതിനായാണ് പ്രത്യേക സംവിധാനത്തിന് രൂപം നൽകുന്നത്

ഇതു കൂടാതെ ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ എന്നീ അയൽരാജ്യങ്ങളുമായും ചർച്ചകൾ നടക്കുന്നതായി മന്ത്രി അറിയിച്ചു

എസ് യു കെ ഫ്രാൻസ് ജർമ്മനി യു എ ഇ ഖത്തർ മാലിദ്വീപ് എന്നീ രാജൃങ്ങളിലേക്ക് കഴിഞ്ഞ മാസം വിമാന സർവീസ് ആരംഭിച്ചിരുന്നു

സ്വാശ്രയത്വം കൈവരിക്കുന്നതിനായി ഇറക്കുമതി കുറയ്ക്കണമെന്നും വിവിധ ഘടകങ്ങളുടെ ഉൽപാദനം വർധിപ്പിക്കണമെന്നും ന്യൂഡൽഹിയിൽ ഗഡ്കരി പറഞ്ഞു വ്യാവസായിക ക്ലസ്റ്ററുകൾ ടെക്നോളജി സെന്ററുകൾ റിസർച്ച് ലാബുകൾ സാങ്കേതികവി ദ്യയുടെയും നൈപുണ്യത്തിന്റെയും നവീകരണം എന്നിവ വികസിപ്പിക്കണമെന്ന് മേഖലയിലെ ഈ എല്ലാ വ്യവസായികളോടും അദ്ദേഹം അഭ്യൂർത്ഥിച്ചു കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ സാങ്കേതിക സ്ഥാപനങ്ങൾ വികസിപ്പിക്കുന്നതിന് സാധ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി ബന്ധപ്പെട്ടവർക്ക് ഉറപ്പ് നൽകി

ഐ ടി മദ്രാസ് സി ഡാക് എന്നീ സ്ഥാപനങ്ങളുടെ സൌകരൃങ്ങൾ ഉപയോഗിച്ച് ഉത്പന്നങ്ങൾ വികസിപ്പിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ നൽകുക

അഞ്ച് വർഷത്തിനുള്ളിൽ യു

യിൽ നാൽപതിനായിരം കോടി രൂപയുടെ നിക്ഷേപഠ ലക്ഷ്യമിടുന്നതാണ് നയം

ബി ഐ

അന്വേഷണത്തിന് സഹായിക്കാൻ മഹാരാഷ്ട്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു കേസിൽ ഇതുവരെ ശേഖരിച്ച എല്ലാ തെളിവുകളും മുംബൈ പോലീസ് അന്വേഷണ ഏജൻസിക്ക് കൈമാറും

കേരളത്തിൽ ഇന്ന് നാല് കോവിഡ് ബാധിതർ കൂടി മരിച്ചതായി റിപ്പോർട്ടുണ്ട്

കേന്ദ്ര സർക്കാരിന്റെ സ്മയോചിത നടപടികളും കൃത്യമായ തയ്യാറെടുപ്പുകളും ആണ് കോവിഡ് മഹാമാരിയെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ സഹായ്കമായത്

കോവിഡ് മൂലമുളള മരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇന്ത്യ

രാജ്യത്തെ മുപ്പതോളം സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മരണ നിരക്ക് ദേശീയ ശരാശരിയെക്കാൾ കുറവാണ്

പോസിറ്റിവിറ്റി നിരക്കിലും തുടർച്ചയായ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്

ഇന്ന്ലെ ് രാത്രി മാലി സൈനൃം പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസ്തി വളയുകയും വെടിവെപ്പ് നടത്തുകയും ചെയ്തതിര്നു തുടർന്നാണ് ഇബ്രാഹിം രാജി പ്രഖ്യാപിച്ചത്